നടന്നേക്കും സംസ്ഥാനത്ത് രാഷ്ട്രീയ കരുനീക്കങ്ങൾ ഊൌർജ്ജിതം

അസമിനെ ദുരിതത്തിലാഴ്ത്തി കനത്തമഴ കൂടുതൽ സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കും

സിമോണ ഹാലപ്പിന്

ലോകകപ്പ് ക്രിക്കറ്റ് കിരീടാവകാശിയെ ഇന്നറിയാം ഫൈനലിൽ ഇംഗ്ലണ്ട് ന്യൂസിലന്റ് പോരാട്ടം

ജെ പി സംസ്ഥാന അദ്ധ്യക്ഷൻ ബി

തിങ്കളാഴ്ച രാവിലെ നിയമസഭയിലെ ചർച്ചാ വിഷയങ്ങൾ പരിഗണിക്കുന്ന സമിതിയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വിശ്വാസ വോട്ടെടുപ്പിന് തയ്യാറാകാൻ മുഖ്യമന്ത്രി എച്ച്

കുമാര സ്വാമിയോട് നിർദ്ദേശിക്കാൻ സ്പീക്കറോട് ആവശ്യപ്പെടുമെന്ന് ശ്രീ

കഴിഞ്ഞദിവസം ഭൂരിപക്ഷം തെളിയിക്കാൻ വോട്ടെടുപ്പിന് തയ്യാറാണ്ണെന്ന് ശ്രീ

അഞ്ച് എം എൽ

കോൺഗ്രസിന്റെയും ജെ ഡി

എ മാർ രാജി നൽകിയതും ക്ട് സ്വതന്ത്രർ ബി ജെ

ഇതിനിടെ വിമത എം

എ മാരെ പ്രിയ്നുനയിപ്പിക്കാൻ കോൺഗ്രസ്സ് ശ്രമം തുടരുന്നു മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മന്ത്രി എം

നാഗരാജിനെ സന്ദർശിച്ച് രാജികത്ത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി കുമാരസ്വാമി നേരിട്ട് നാല് എം

അവർ രാജി പിൻവലിക്കുമെന്ന പ്രതീക്ഷയിലാണ്

ശുചിത്വ യജ്ഞത്തിന്റെ ആവശ്യകത രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ സ്പീക്കർ ഓം ബിർല എം

മാരോട് അഭ്യർത്ഥി ച്ചു പാർലമെന്റ് മന്ദിരത്തിൽ സ്വച്ഛതാ അഭിയാൻ ആരംഭിച്ചത് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ശുചിത്വ സന്ദേശം പ്രചരിപ്പിക്കു ന്നതിന് വേണ്ടിയാണെന്ന് ശ്രീ

മാർ എന്നും ശുചിത്വത്തെ ക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിൽ അവർക്ക് പ്രധാന പങ്കാണ് ഉള്ളതെന്നും ശ്രീ

ഇതാദ്യമായാണ് പാർലമെന്റിൽ ഇത്തരമൊരു സംരംഭം നടക്കുന്നതെന്നും ഈ ശ്രമത്തിന് ശ്രീ ബിർലയെ അഭിനന്ദിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്സിംഗ് പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തുകയും ശുചിത്വ സന്ദേശം പ്രചരിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു

മഴയിലും മണ്ണിടിച്ചിലിലും ഏഴ് പേർ മരിച്ചു ദുരത്പൂ പ്രതികരണ സേനയും ജനങ്ങളും രക്ഷാദുരിതാശ്വാസ പ്രവീർത്തനത്തിന് മുന്നിലുണ്ട്

പ്രളയ മേഖ ലകളിൽ ദുരിതാശാസ സാമഗ്രികൾ വിതരണം ചെയ്യുന്നുണ്ട്

ദുരന്ത സാഹചര്യം നേരിടാൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്രവും ഏജൻസികളും സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് അദ്ദേഹം വിലയിരുത്തി പ്രളയബാധിത സംസ്ഥാനങ്ങളിലേക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകാൻ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കഴിഞ്ഞ നാലു ദിവസങ്ങളിലായി ആസാമിലും നൽകി ബീഹാറിലും കനത്ത മഴയാണെന്ന് കാലാവസ്ഥാവകുപ്പ് അറിയിച്ചു

പ്രധാൻ പറഞ്ഞു

വിശദാംശങ്ങളുമായി സുരേഷ്

സെപ്റ്റംബർ ആറിന് പേടകം സുരക്ഷിതമായി ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങും

എസ് ആർ ഒ വിക്ഷേപിച്ച ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രന്റെ ഉപരി തലത്തെക്കുറിച്ചും ജലസാന്നിദ്ധ്യത്തെക്കുറിച്ചും വിശദമായ പഠനം നടത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉക്രാലിൽ നിന്ന് അലിൻബാസിലേക്ക് പോകുകയായിരുന്ന കാർ റോഡിൽ നിന്ന് തെന്നി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു

പരിക്കേറ്റ വരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവ്വേഴ്സിപ്പിച്ചു

തീവ്രവാദപ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും ഇന്ത്യൻ സേന ദൃഢനിശ്ചയത്തോടെ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ തയ്യാറാണ് അടുത്തിടെ യുദ്ധമുഖങ്ങളിൽ വന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഭാവിയിലെ യുദ്ധങ്ങൾക്കായി ഇന്ത്യൻ സേന തയ്യാറാകേണ്ടതുണ്ടെന്നും ശ്രീ റാവത്ത് പറഞ്ഞു ഇന്റർനെറ്റും ബഹിരാകാശമേഖലയും യുദ്ധഭൂമിയുടെ സ്വഭാവം തന്നെ മാറ്റിയിരിക്കുന്നതായും കരസേനാമേധാവി പറഞ്ഞു

ഇന്നലെ ചെന്നൈയിൽ ടെമ്പിൾ ശ്രീരംഗം പ്രിസെർവിംഗ് ആന്റിക്വിറ്റി ഫോർ പോസ്റ്റെറിറ്റി എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരി ക്കുകയായിരുന്നു അദ്ദേഹം കല വാസ്തുവിദ്യ പാട്ട് നൃത്തം കവിത നാടകം പുരാണം തതചിന്ത്യൂ കണക്ക് മെറ്റീരിയൽ സയൻസ് എന്നീ അമൂല്യനിധികൃശ്ശ് ഇന്ത്യയിൽ ഉണ്ടെന്ന് ശ്രീ

അത്തരം അവഗ്ണനിതുടരാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ന് നടക്കുന്ന പുരുഷ വിഭാഗം സിംഗിൾസ് ഫൈന ലിൽ എട്ട് തവണ ചാമ്പ്യൻപട്ടം കരസ്ഥമാക്കിയ റോജർ ഫെഡറർ ലോക ഒന്നാം നമ്പർതാരം നൊവാക് ദ്യോക്യോവിച്ചുമായി ഏറ്റുമു ട്ടും

ഇന്ന് വൈകിട്ട് മൂന്നുമണിക്ക് ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ ഇംഗ്ലണ്ടും ന്യൂസിലാന്റും കന്നിക്കിരീടത്തിനായി ഏറ്റുമുട്ടും

ഏറെ ആവേശത്തോടെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ആ നിമിഷത്തിനായി കാത്തിരിക്കുന്നത്

അവരെയൊക്കെ ഗ്യാലറിയിലേക്ക് മടക്കിയാണ് ഇത്തവണ് കന്നിക്കിരീടം സ്വന്തമാക്കാനായി ഇംഗ്ലണ്ടും ന്യൂസിലന്റും ഇറങ്ങുന്നത് ഇംഗ്ലണ്ട് നാലാം തവണയും ന്യൂസിലന്റ് രണ്ടാം തവണയുമാണ് ഫൈനൽ കളിക്കുന്നത്

മൂന്നുതവണ ഫൈനൽ വരെയെത്തി മടങ്ങിയ ഇംഗ്ലണ്ടിന് ഇത്തവണ സ്വന്തം മണ്ണിൽ കപ്പുയർത്തിയേ മതിയാവൂ

ബാറ്റിങിലും ബൌളിങിലുമെല്ലാം അവർ നിലവാരം പുലർത്തുന്നു ന്യൂസിലാന്റിന് പോരായ്മകളുണ്ട് പക്ഷേ ഏതു സാഹചര്യത്തെയും കൂട്ടായി അതിജീവിക്കാനുള്ള അവരുടെ കരുത്ത് അപാരമാണ് ലീഗ് റൌണ്ടിൽ ഇരുവരും മത്സരിച്ചപ്പോൾ ഇംഗ്ലണ്ടിനായിരുന്നു വിജയം